സീറ്റ് ചർച്ചകൾ ഊർജീതുമാക്കി മുന്നണികൾ എൻഫോഴ്സ്മെന്റ് ഡ്യറക്ടറേറ്റിന് മുന്നിൽ ന് ഹാജരാകില്ലെന്ന് നിലപാടറിയിച്ച് കിഫ്ബി

വിവിധ കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു

ഇംഗ്ലണ്ടിന് മോശം തുടക്കം

നിയമസഭാ തിരഞ്ഞെട്ടുപ്പിനായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുളള ചർച്ച്കൾ മുന്നണികളിൽ പുരോഗമിക്കുകയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന സി

എമ്മിന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ജില്ലാ കമ്മിറ്റികൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കും രണ്ടു തവണ വിജയിച്ചിട്ടും ഇക്കുറി സ്ഥാനാർഥിയായി ജില്ലാ കമ്മിറ്റികൾ ശുപാർശ ചെയ്ത മന്ത്രിമാരുടേയും എം എൽ

എഫിൽ തർക്കങ്ങളില്ലാത്ത സീറ്റിലെ സ്ഥാനാർഥികളുടെ കാര്യത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ധാരണയാകുമെന്നാണ് സൂചന

ഡി എഫിലും ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കും കൂത്തുപറമ്പ് പട്ടാമ്പി പേരാമ്പ്ര എന്നീ സീറ്റുകൾ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചയാണ് ഇന്ന് പ്രധാനമായി നടക്കുക കോട്ടയത്തെ സീറ്റുകളിലെ തർക്കം പരിഹരിക്കാൻ നാളെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും കോൺഗ്രസ് ഉഭയ കക്ഷി ചർച്ച നടത്തും

എയിൽ ബി

പിയുടേയും ബി

എസിന്റേയും സ്ഥാനാർഥി നിർണയ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്

ജെ പി പ്രതീക്ഷ പുലർത്തുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ളവരുടെ പട്ടിക ഇതിനകം പൂർത്തിയായിട്ടുണ്ട്

ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് മുഴുവൻ സ്ഥാനാർഥികളേയും പ്രഖ്യാപിക്കാൻ കഴിയും വിധമാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്

പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനാവില്ലെന്ന് കി ്ഫ്ബി രേഖാമൂലം ഇ

കിഫ്ബി ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടർ ഇന്നും കിഫ്ബി സി

ഒ നാളെയും ഹാജരാകാനാണ് ഇ

നേരത്തെ കിഫ്ബിക്കെതിരായ എൻഫോഴ്സ്മെന്റിന്റെ നീക്കം മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിഷണർക്ക് കത്തയച്ചിരുന്നു ഏജൻസികൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി കിഫ്ബി മസാലബോണ്ടിൽ വിദേശനാണയ വിനിമയചട്ട ലംഘനം ആരോപിച്ച് ഇ

കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു

ഡി അന്വേഷണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

അന്വേഷണവുമായി മുഖ്യമന്ത്രി സഹകരിക്കണമെന്നും നിയമ സംവിധാനങ്ങളോട് ചേർന്ന് പോകാൻ സംസ്ഥാന സർക്കാർ തയാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സുദീപ് ജെയിൻ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന തിനായി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സുദീപ് ജെയിൻ ഈ മാസം ഏഴ് മുതൽ വിവിധ ജില്ലകളിൽ സന്ദർശനം നടത്തും ഏഴാം തീയതി തൃശൂരിൽ എത്തുന്ന കമ്മീഷണർ എട്ടാം തീയതി എറണാകുളത്ത് ജില്ലാ വരണാധികാര്യിക്ക്ൾ ്പോലീസ് മേധാവികൾ എന്നിവരുമായി ചർച്ച നടത്തും

ഒമാർ മുഖേന അതാത് നിയോജക മണ്ഡലം സഹ വരണാധികാരിക്ക് സമർപ്പിക്കണം

ഇതുസംബന്ധിച്ച് സന്ദേശം ലഭിച്ച എല്ലാ ഉദ്യോഗസ്ഥരും വാക്സിനേഷനായി നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കോവിഡ് വാക്സിൻ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹികാരോഗൃ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഇന്നുമുതൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് ലഭൃമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്രമീകരണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു പ്പിഭാഗങ്ങളിൽപെട്ട ആളുകൾക്കും ഇവിടെ വാക്സിൻ ന്റൽകും

ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധൃതയുണ്ട് സൂര്യാഘാതം നിർജലീകരണം തുടങ്ങിയ ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു

പലയിടങ്ങളിലും മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും വാക്സിൻ ലഭിക്കാതെ മുതിർന്ന പൌരന്മാർ മടങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു

ഡി

മുൻമന്ത്രി ഷിബു ബേബിജോൺ നയിക്കുന്ന ജാഥയ്ക്ക് രാവിലെ ചാത്തന്നൂർ മണ്ഡലത്തിലെ പരവൂർ തെക്കുംഭാഗത്ത് സ്വീകരണം നൽക്കി

മേളയുടെ ലോഗോ പ്രമേയമാക്കി രാമചന്ദ്ര പുലവർ അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് അരങ്ങേറും

ശ്രീധരൻ കൊച്ചി പാലാരിവട്ടം പാലം ഫ്ളൈ ഓവറിന്റെ നിർമ്മാണം നാളെ പൂർത്തിയാകുമെന്ന് മെട്രോമാൻ ഇ

വാക്സിൻ കണ്ണൂർ കൊവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെയോ ആശാപ്രവർത്തകരുടെയോ നിർദേശാനു സരണം മാത്രം വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തിയാൽ മതിയെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു

തിരുവനന്തപുരം സ്വദ്ദേശിയായ ഹരികുമാർ മുംബൈയിൽ കമാൻഡ് ആസ്ഥാനത്ത് ് നടന്ന ചടങ്ങിലാണ് ചുമതലയേറ്റത്

ഒരു പകൽ മുഴുവൻ നാട്ടുകാരെ ഭീതിയിലാക്കിയ ആനയെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തിരിച്ചയച്ചത്